കേരളത്തിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ചു ആശങ്ക ന്ന് മുഖ്യമന്ത്രിയും ആരോഗൃമന്ത്രിയും വേ കേരളത്തിന് എല്ലാ സഹായവും ലഭൃമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ

പ്രസാർഭാരതിയുടെ സ്വയംഭരണം നിലനിർത്തേ ത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

കാണാതായ വ്യോമസേനാ വിമാനത്തിനായുള്ള തെരച്ചിൽ തുടരുന്നു

ഡൽഹി എയിംസിൽ നിന്നുള്ള ആറംഗ ഡോക്ടർമാരുടെ സംഘം കൊച്ചിയിൽ എത്തിയിട്ടു അതിനിടെ കൊച്ചിയിൽ നിപ സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു

സോഷ്യൽ മീഡിയയിലൂടെ കുപ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

പി എസ് പി ഒറ്റക്ക് മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷ മായാവതി പറഞ്ഞു സമാജ് വാദി പാർട്ടിയുമായുളള സഖ്യം വേ ന്ന് വയ്ക്കുന്നത് താൽക്കാലികമായാണെന്നുംഭാവിയിൽ ഈ സഖ്യം തുടരാനുളള സാധ്യതകൾ സജീവമാണെന്നും ന്യൂഡൽഹിയിൽ വാർത്താ ലേഖകരോട് സംസാരിക്കവേ മായാവതി വൃക്തമാക്കി

ജി വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൂരദർശനുള്ള വിശ്വാസൃത കഴിഞ്ഞ അഞ്ച് വർഷമായി വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു പ്രസാർ ഭാരതി കൂടുതൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുമെന്നും ശ്രീ ജാവ്ദേക്കർ വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി് സോഫിയ വോയിസ് ലോകപരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് സെല്ഫി വിത്ത് സാപ്തിംഗ് സേവ് ദി പ്ലാനറ്റ് എന്ന ജനകീയ പ്രചാരണ പരിപാടിക്ക് കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു

വൃക്ഷത്തൈ നടുന്നതിന്റെ സെൽഫി എടുത്ത് അയയ്ക്കണമെന്ന് ശ്രീ ജാവ്ദേക്കർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രമുഖ ക്രിക്കറ്റ് താരം കപിൽദേവും ചലച്ചിത്ര താരം ജാക്കി ഷ്രോഫും നാളെ വൃക്ഷത്തൈ നടുമെന്ന് ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു സെല്ഫി വിത്ത് സാപ്തിംഗ് സേവ് ദി പ്താനറ്റ് എന്നതാണ് പരിസ്ഥിതി മന്ത്രാലയം ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ ആവിഷ്കരിച്ച പുതിയ പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പരിപാലനത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്ത് പരിസ്ഥിതിദിനാഘോഷ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാണ് ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നതെന്ന് ശ്രീ ജാവ്ദേക്കർ അറിയിച്ചു അന്തരീക്ഷ മലിനീകരണ നിയന്ത്രണമാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ആശയം വായു മലിനീകരണത്തിനെതിരെ അവബോധം വളർത്താനുള്ള ഗാനം ഹവാ ആനേ ദെ നേരത്തെ പരിസ്ഥിതി മന്ത്രാലയത്തിലെ സെക്രട്ടറി പ്രകാശനം ചെയ്തു

രാജ്യത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ ശക്തിപ്പെടുത്തി ടൂറിസം മേഖലയെ സമ്പുഷ്ടമാക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും

തൊഴിലവസരങ്ങൾക്ക് വൻ സാധ്യതയുള്ള ടൂറിസം മേഖലയ്ക്ക് ഇന്ത്യയുടെ പൈതൃകം മുതൽക്കൂട്ടാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ഫോനി ചുഴലിക്കാറ്റ് കൃത്യമായി പ്രവചിച്ച് രക്ഷാ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിച്ച കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തെ മന്ത്രി പ്രശംസിച്ചു

അടിസ്ഥാന സൌകരൃ വികസനത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് അടുത്ത അഞ്ച് വർഷത്തെ ലക്ഷ്യമെന്ന് ശ്രീമതി ബാദൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ജമാ അത്ത് ഉദ് ദവ്വാ തലവൻ ഹാഫിസ് സയ്യിദ് ഉൾപ്പെട്ട കേസിലാണ് അന്വേഷണം നടത്തുന്നത് പ്രത്യേക കോടതി ജഡ്ജി രാകേഷ് സയാലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്

പറന്നുയർന്ന് ഒരു മണിക്കൂറിനകം വ്യോമത്താവളവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ജോർഹട്ട് മെച്ചുക്ക എന്നീ പ്രദേശങ്ങൾക്കിടയിലാണ് തിരച്ചിൽ നടക്കുന്നത് വിദേശ നിർമ്മിത സെൻസെറുകൾ ഘടിപ്പിച്ച വിമാനങ്ങളാണ് തിരച്ചിലിനായി ഉപയോഗിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി വോയിസ് പ്രധാനമന്ത്രിയായി ര ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ശ്രീ നരേന്ദ്രമോദി നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത് അയൽ രാജ്യത്തിന് പ്രഥമ പരിഗണന എന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നയം പ്രകടമാക്കുന്നതാണ് മാലിദ്വീപിലെയും ശ്രീലങ്കയിലെയും സന്ദർശന പരിപാടി

ര ു ദിവസത്തെ സന്ദർശനത്തിന് എട്ടാം തീയതി പ്രധാനമന്ത്രി മാലിദ്വീപിലെത്തു മാലിദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിയുടെ ക്ഷണമനുസരിച്ചാണ് സന്ദർശനം കഴിഞ്ഞവർഷം ഡിസംബറിൽ സോലി ഇന്ത്യ സന്ദർശിച്ചിരുന്നു മാലിദ്വീപ് രാഷ്ട്ര നേതാക്കളുമായി ശ്രീ നരേന്ദ്രമോദി ഉന്നതതല ചർച്ച നടത്തും

ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ ക്ഷണമനുസരിച്ചാണ് സന്ദർശനം

പുതിയ ജെഴ്സിയുടെ വിപണന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ബി സി സി ഐ വൃത്തങ്ങൾ അറിയിച്ചു

ദക്ഷിണ കൊറിയയും തായ്ലന്റും പിൻമാറിയതിനെ തുടർന്നാണ് ടൂർണമെന്റ് ചൈനയിൽ നടത്താൻ തീരുമാനമായതെന്ന് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പാരീസിൽ പറഞ്ഞു ഇത് ര ാം തവണയാണ് ഏഷ്യാകപ്പ് ഫുട്ബോളിന് ചൈന ആതിഥ്യമരുളുന്നത്

കുടിവെള്ള പദ്ധതികൾ ആശുപത്രി വികസനം റോഡുകൾ റെയിൽവേ മേൽപ്പാലം സ്റ്റേഡിയം നിർമാണം എന്നിവയ് ക്കാണ് പണം അനുവദിച്ചതെന്ന് ധനമന്ത്രി ഡോ

തോമസ് ഐസക്ക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഒരു മാസം നീ വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നത്

വാണിജ്യ രംഗത്ത് യു എസും ചൈനയും തമ്മിൽ വളരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ മാർഗ്ഗ നിർദ്ദേശം പുറപ്പെടുവിച്ചത്